പകരം പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഉദ്യോഗസ്ഥർ മുൻതൂക്കം നൽകേണ്ടതെന്ന്പ്പ്പിച്ചധാനമന്ത്രി നരേന്ദ്ര മോദി

മൂന്ന് മരണം കൂടി സ്ഥിരീകരിച്ചു

പെട്ടിമുടി ഗവർണറും മുഖ്യമന്ത്രിയും സന്ദർശിച്ചു

കേന്ദ്ര പ്രത്യക്ഷനികുതി ബോർഡിന്റെ പുതിയ പരിഷ്കാരങ്ങൾ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ ഉദ്ഘാടനം ചെയ്യുകയാ യിരുന്നു പ്രധാനമന്തി സുതാര്യ നികുതിപരിവ് സത്യസന്ധരെ ആദരിക്കൽ എന്ന സംവിധാനം നിലവിൽ വരുന്നതോടെ ഈ രംഗത്ത് കൂടുതൽ പരിഷ്കരണം നടപ്പാവും രാഷ്ട്രത്തിന്റെ വികസനത്തിൽ സത്യസന്ധരായ നികുതിദായകർക്ക് സുപ്രധാ നസ്ഥാനമുണ്ട് നികുതി ഒടുക്കുന്നത് തങ്ങളുടെ ഉത്തരവാ ദിത്തമായി കണക്കാക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു

നികുതിദായകനെ ആശയക്കുഴപ്പത്തി ലാക്കുന്നതിനുപകരം പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഉദ്യോഗ സ്ഥർ മുൻതൂക്കം നൽകേണ്ടത് സാങ്കേതികവിദ്യ മുതൽ നിയമങ്ങൾ വരെ എല്ലാം ലളിതമായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു നികുതിദായകന്റെ അവകാശങ്ങൾ അംഗീകരിക്കു ന്നതിനൊപ്പം തന്നെ കടമകളെ കുറിച്ചും സർക്കാർ അവരെ ബോധ്യപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ജനസൌഹാർദ്ദമായ നിയമങ്ങൾക്കും നയങ്ങൾക്കും രൂപം നൽകുന്നതിനാണ് സർ ക്കാർ മുൻഗണന നൽകുന്നത് വിദേശ നിക്ഷേപകർക്ക് ഇന്ത്യയിലുള്ള വിശ്വാസം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് കൊറോണ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും നേരിട്ടുള്ള വിദേശ നിക്ഷേപം ഇന്ത്യയിലേക്ക് വരുന്നത് ഇതിന് ഉദാഹരണമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കേന്ദ്ര ധനമന്ത്രി നിർമല സീതാരാമൻ സഹമന്തി അനുരാഗ് സിങ്ങ് താക്കൂർ വ്യാപാര വാണിജ്യ പ്രതിനിധികൾ ചാർട്ടേഡ് അക്കൌണ്ട് പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും സ്ഥാപന ചടങ്ങിൽ പങ്കെടുത്തു

ഇന്ത്യയുടെ പുരോഗതിയുടെയും വികസനത്തിന്റെയും നട്ടെല്ലായ സത്യസന്ധരായ നികുതിദായകരെ ശാക്തീക ബഹുമാനിക്കാനും മ്യൂട്ടി ് സർക്കാർ നിരവധി രിക്കാനും സുപ്രധാന തീരുമാനങ്ങൾ എടുത്ത്തുവരികയാണ്

നികുതി ഭരണത്തിലെ ചരിത്രപരമായ നടപടിക്കാണ് പ്രധാന മന്ത്രി തുടക്കമിട്ടതെന്ന് ഫിക്കി സെക്രട്ടറി ജനറൽ ദിലീപ് ചെനോയ് പറഞ്ഞു യഥാസമയം നികുതി അടച്ച് രാജ്യത്തിന്റെ വികസനത്തിന് സംഭാവന നൽകണമെന്നും പ്രധാനമന്തിയുടെ അഭ്യർത്ഥനയിൽ പങ്കാളിയാകണമെന്നും ഫിക്കി ആവശ്യപ്പെട്ടു പുതുതായി ആരംഭിച്ച സംവിധാനം സാധാരണക്കാരായ നികുതിദായകർക്ക് കൂടുതൽ സൌകര്യമുള്ളതാണെന്ന് ജെ സാഗർ അസോസിയേറ്റ്സ് പ്രതിനിധി കുമാരമംഗലം വിജയ് പറഞ്ഞു മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിലെ വർധനവിനും ഇത് സഹായകമാകുമെന്നും അദ്ദേഹം പറഞ്ഞു

മഥുരയിൽ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ആഘോഷങ്ങളിൽ പങ്കെടുത്തതിന് ശേഷം നടന്ന പരിശോധനയിലാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്

അതിനിടെ കേന്ദ്ര ആയുഷ് മന്ത്രി ശ്രീപദ് നായിക്കിനും കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്

രോഗലക്ഷണങ്ങൾ ഇല്ലാത്തതിനാൽ മന്ത്രി വീട്ടുനിരീക്ഷ ണത്തിൽ കഴിയുകയാണ്

കോവിഡ് തിരുവനന്തപുരം മുക്കോല കോഴിക്കോട് രാമനാട്ടുകര മലപ്പുറം സ്വദേശികളാണ് കോവിഡ് മൂലം മരിച്ചത്

ഇന്ന് രോഗം സ്ഥിരീകരിച്ച ജില്ലകളിൽ കൂടുതൽ പേരും തിരുവനന്തപുരത്താണ്

നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള കമ്പ്യൂട്ടർ അൽഗോരിതം സംവിധാനത്തിലൂടെയാണ് ഈ പഠനം നടത്തു ന്നത് കോവിഡിനെ തടഞ്ഞു നിർത്തുന്നതിനോ ചികിത്സിച്ചു ഭേദമാക്കാനോ സഹായകമായ മരുന്ന് എത്രയും വേഗം കണ്ടെത്തേണ്ടതുണ്ടെന്ന് ഗവേഷണത്തിന് നേതൃത്വം നൽകിയ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ആനന്ദ് ശങ്കർ റേ പറഞ്ഞു

ഇന്ന് രാവിലെയാണ് കേരള പൊലീസിന്റെ ഹെലികോപ്റ്ററിൽ സംഘം ആനച്ചാലിലെ ഹെലി പാഡിൽ എത്തി

തുടർന്ന് മൂന്നാറിൽ നടന്ന അവലോകനയോഗത്തിലും ഇരുവരും പങ്കെടുത്തു പെട്ടിമുടി ദുരന്തത്തിൽ അകപ്പെട്ട കുടുംബങ്ങളുടെ പുനരധിവാസം സർക്കാർ ഉറപ്പു വരുത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

ആഘോഷപരിപാടികളുടെ അവസാനവട്ട തയ്യാറെടുപ്പുകൾ ഡൽഹി ചുവപ്പുകൊട്ടയിൽ പുരോഗമിക്കുകയാണ് കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ലളിതമായ രീതിയിലാണ് നടത്തുന്നത് ശനിയാഴ്ച പരിപാടികൾ രാവിലെ ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയപതാക ഉയർത്തിയതിനു ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്യും കേരളത്തിലും ഒരുക്കങ്ങൾ പൂർത്തിയായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തും കോവിഡ് പശ്ചാത്തല ത്തിൽ ഇക്കുറി പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല

ഇ പാസ്സ് മോഡ്യൂളിന്റെ വിവിധ വശങ്ങളെക്കുറിച്ചും ഇത് ഘട്ടംഘട്ടമായി എങ്ങനെ നടപ്പാക്കും എന്നതിനെക്കുറിച്ചും മാനവവിഭവശേഷി ഡയറക്ടർ ജനറൽ വിശദീകരിച്ചു